ഇന്നലത്തെ ഹർത്താൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ക്രമസമാധാനനിലയെപ്പറ്റി ഇന്നു തന്നെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകാൻ നടപടിയാരംഭിച്ചു ഹർത്താൽ അക്രമ സംഭവങ്ങളിൽ അയ്യായിരത്തോളം പേർക്കെതിരെ പൊലീസ് കേസെടുത്തു കൊച്ചിയിൽ ബി

പി ആർ

ശബരിമല വിഷയത്തിൽ തുടർ നിലപാടുകൾ നാളത്തെ യു

മൂന്നംഗ ബെഞ്ചായിരിക്കും അയോധ്യ ഭൂമിതർക്ക ക്കേസ് പരിഗണിക്കുന്നത്

സുന്നി വഖഫ് ബോർഡിനും നിർമ്മോഹി അഖാരക്കും രാംലെല്ലയ്ക്കുമായി ഭൂമി പങ്കിടണമെ ന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി വിധി കേസ് അടിയന്ത രമായി പരിഗണിക്കണമെന്ന ഹർജി കഴിഞ്ഞയാഴ്ച നിരസിച്ച സുപ്രീംകോടതി ഈ ആഴ്ച ആദ്യം കേസ് പരിഗണിക്കുന്ന ബെഞ്ച് രൂപീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു ഇന്നലത്തെ ഹർത്താൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ക്രമസമാധാനനിലയെപ്പറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നുതന്നെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകാൻ നടപടി യാരംഭിച്ചു എല്ലാ ജില്ലകളിൽ നിന്നും അക്രമസംഭവങ്ങളുടെ റിപ്പോർട്ട് ക്രോഡീകരിച്ച് ഫോട്ടോകളും ദൃശ്യങ്ങളും സഹിതം സമഗ്ര റിപ്പോർട്ട് നൽകാനാണ് തയ്യാറെടുക്കുന്നത് ജില്ലകളിൽ നിന്ന് വിവരശേഖരണം പുരോഗമിക്കുകയാണ് ഇന്നലത്തെ ശബരിമല കർമ്മസമിതി ഹർത്താലിലുണ്ടായ അ ക്രക മ സം ഭ വ ങ്ങ ളിൽ കണ്ടാ ല റി യാ വു ന്ന അയ്യാ യി ര ത്തോളംപേർക്കെതിരെ പൊലീസ് കേസെടുത്തു ഇവരെ പിടികൂടാൻ പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചു ഓരോ സ്റ്റേഷ നിലും നാല് പൊലീസുകാരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോ ഗിച്ചു ജില്ലാതലത്തിൽ എസ് പി യുടെ നേതൃത്വത്തിലും ഓരോ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് അക്രമങ്ങളുടെ ഫോട്ടോയിൽ നിന്നും വീഡിയോയിൽ നിന്നും പ്രതികളുടെ ആൽബം തയ്യാറാ ക്കിയശേഷമായിരിക്കും തുടർനടപടികൾ അറസ്റ്റിലാകുന്നവരിൽ നിന്നും പൊതുമുതൽ നശിപ്പിച്ചതിന് നഷ്ടപരിഹാരം ഈടാക്കാൻ ചീഫ് സെക്രട്ടറി നിർദേശം നൽകി ശബരിമല വിഷയത്തിൽ തുടങ്ങിയ അക്രമം പല ജില്ലകളിലും ഇനിയും ആവർത്തിച്ചേക്കാം എന്ന വിലയിരുത്തലിൽ സംസ്ഥാ നത്ത് കർശന ജാഗ്രത പുലർത്താൻ ജില്ലാപൊലീസ് മേധാവി കൾക്ക് ഡി ജി പി നിർദേശം നൽകി പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിൽ അതീവ ജാഗ്രതയും കോഴിക്കോട് കണ്ണൂർ കൊല്ലം ജില്ലകളിൽ ജാഗ്രതയും പുലർത്താൻ രഹ സ്യാ നേ ഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്

ഹർത്താലിന്റെ പേരിൽ ബി

പി പ്രവർത്തകർക്കെതിരെ ഏകപക്ഷീയമായി കേസെടുക്കാൻ അനുവദിക്കില്ലെന്ന് ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു പന്തളത്ത് അയ്യപ്പഭക്തന്റെ മരണത്തെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത് ശബരിമ ലയിൽ ആചാരലംഘനം ഇനി അനുവദിക്കില്ലെന്നും സമരം ശക്ത മായി തുടരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ശബരിമല വിഷയം ഉന്നയിച്ച് പാർലമെന്റിലെ ഗാന്ധിപ്രതി മയ്ക്ക് മുന്നിൽ ദക്ഷിണേന്ത്യൻ ബി ജെ പി എം പി മാർ പ്രതി ഷേധിച്ചു വി മുരളീധരൻ സുരേഷ് ഗോപി തുടങ്ങിയവരാണ് പ്രതി ഷേധത്തിന് നേതൃത്വം നൽകിയത് ശബരിമല യുവതീപ്രവേ ശനത്തെ അനുകൂലിക്കുന്നതായി ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വി മുരളീധരൻ എം

സന്ദർഭത്തിൽ നിന്ന് അടർത്തിമാറ്റി പരാമർശം തെറ്റിദ്ധാരണാജനകമായ രീതി യിൽ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾ ഓരോ വിഷയത്തിലും പക്ഷപാതപരമായ നിലപാടു കൾ ഒഴിവാക്കി നിഷ്പക്ഷത ഉറപ്പുവരുത്തണമെന്ന് മുരളീധരൻ ഡൽഹിയിൽ ആവശ്യപ്പെട്ടു ശബരിമല വിഷയം ഇപ്പോൾ ലോക്സഭ ചർച്ചചെയ്യുകയാ ണ് ട്രാൻസ്ജെൻഡറുകൾ എന്ന പേരിൽ യുവതികളെ ശബരിമ ലയിലെത്തിച്ച സംസ്ഥാന ഗവൺമെന്റ് ഹിന്ദുമത വിശ്വാസികളെ പ്രണപ്പെടുത്തിയെന്ന് മീനാക്ഷിലേഖി എം

സുപ്രീംകോടതി ഉത്തരവിന്റെ പേരിലാണ് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതെന്നാണ് പറയുന്നത്

ശബരിമല യുവതി പ്രവേശനത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു ശ്രീലങ്കൻ യുവതി ശബരിമലയിൽ ദർശനം നടത്തിയതായി പൊലീസും മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചു

ഇതിന്റെ ദൃശ്യങ്ങളും പൊലീസ് പുറത്തുവിട്ടു നേരത്തെ ദർശനത്തിനെത്തിയ ശശിക ലയെ മരക്കൂട്ടത്തുനിന്ന് തിരിച്ചയച്ചുവെന്നായിരുന്നു റിപ്പോർട്ട് ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളുടെ നിലപാട് വൃത്യസ്തമാ ണെന്ന് കെ

സി സി വർക്കിംഗ് പ്രസിഡണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എം

ഇക്കാര്യത്തിൽ സോണിയാഗാന്ധി എം പി മാരെ ശാസിച്ചിട്ടില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറ ഞ്ഞു ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ബി

കഴിഞ്ഞ ഏഴ് ദിവസം നിരാഹാരമിരുന്ന ബി ജെ പി സംസ്ഥാന വൈസ്പ്രസിഡണ്ട് എൻ ശിവരാജനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു

കേരളം ഭരിക്കുന്നവരുടെ നിർബന്ധബുദ്ധിയാണ് അക്രമ ങ്ങൾക്ക് കാരണമെന്ന് ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ എം

ഗവൺമെന്റ് തന്നിഷ്ടം അടി ച്ചേൽപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടാ കുന്നത് സ്വാഭാവികമാണ്

ഇന്നലത്തെ ഹർത്താലിൽ ബി

എസ് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയാണെന്ന ആരോ പണവും ശബരിമല വിഷയം അയ്യപ്പജ്യോതി വനിതാമതിൽ തുട ങ്ങിയ വിഷയങ്ങളും യോഗം ചർച്ചചെയ്തേക്കും

സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ സമ്പൂർണ പരാജ യമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കാണുന്ന ത് ഒരു വശത്ത് ആർ

എസിന്റെ അഴിഞ്ഞാട്ടവും മറുവശത്ത് സി

ഐ

തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവന ന്തപുരത്ത് ചേരും ശബരിമലയിലെ യുവതിപ്രവേശം മുഖ്യ ചർച്ചാ വിഷയമാകുമെന്നാണ് റിപ്പോർട്ട് യുവതിപ്രവേശനത്തെ തുടർന്ന് ശബരിമല നട അടച്ചത് സംബന്ധിച്ച് തന്ത്രിയോട് വിശദീകരണം ചോദിക്കുന്നത് ചർച്ചയ്ക്ക്ശേഷം തീരുമാനിക്കുമെന്ന് ദേവസം ബോർഡ് പ്രസിഡണ്ട് എ പത്മകുമാർ തിരുവനന്തപുരത്ത് അറി യിച്ചു അക്രമ സമരത്തിലൂടെ രാഷ്ട്രീയ നേട്ട ത്തി നാണ് ബി

പിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്ന് സി

ഐ എം പൊളിറ്റ്ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള കുറ്റപ്പെടുത്തി

എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം് തിരുവന ന്തപുരത്ത് തുടങ്ങി ഇന്നലത്തെ ഹർത്താലിലുണ്ടായ കലാപ സംഭവങ്ങൾ ശബരിമല വിഷയം വനിതാമതിൽ അവലോകനം എന്നിവ പ്രധാന ചർച്ചാവിഷയമായേക്കും

ജി സെന്ററിലാണ് യോഗം സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഭര ണസമിതി പിരിച്ചുവിട്ട ഗവൺമെന്റ് നടപടി അപലപനീയമാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ചേതേശ്വർ പൂജാരയുടെയും ഋഷഭ് പന്തിന്റെയും സെഞ്ചറിയാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിൽ എത്തി ച്ചത്

ഇപ്പോൾ സഹസ്ര കലശാഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചപൂജ പൂർത്തി യാക്കി ഒരു മണിയ്ക്ക് നടയടക്കും ഇന്ധനവില വീണ്ടും കുറഞ്ഞു

രണ്ട് ദിവസത്തിനുശേഷമാണ് ഇന്ധനവില കുറയുന്നത്

കോഴി ക്കോട് ഐസ്ക്രീം പാർലർ കേസിൽ സി

ഐ എം നേതാവ് വി

കീഴ്ക്കോടതി വിധിക്കെതിരെ സമർപ്പിച്ച ഹർജിയിൽ മുസ്ലിംലീഗ് നേതാവ് പി കെ കുഞ്ഞാലി ക്കുട്ടിയെയും ബന്ധുവും വ്യവസായിയുമായ റൌഫിനെയും കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ആരോഗ്യരംഗത്ത് കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങൾക്കെ തിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കുന്നു ബില്ലുകൾ ആരോഗ്യരംഗത്തെ തകർക്കുക മാത്രമാല്ല ആരോഗ്യ സംരക്ഷണമേഖലയുടെ ഗതിതന്നെ മാറ്റുമെന്ന് ഐ

എ ദേശീയ പ്രസിഡണ്ട് ശന്തനുസെൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു പ്രതിഷേധ പരിപാടി ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കാതെയാണ് സംഘടിപ്പിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലത്തെ ഹർത്താലിൽ കാസർകോട് ദേശീയപാത ഉപരോ ധിക്കുകയും റോഡ് തടസ്സപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ കാസർകോട് ടൌൺ പൊലീസ് കേസെടുത്തു

കോഴിക്കോട് പേരാമ്പ്ര കല്ലോട് വീടിനു നേരെ ബോംബേറുണ്ടായി മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ ശശികുമാറിന്റെ വീടിനുനേരെയാണ് പുലർച്ചെ രണ്ടുമണിയോടെ അക്രമമുണ്ടായതെന്ന് പേരാമ്പ്ര പൊലീസ് അറിയിച്ചു